മൂന്ന്പേരും സത്യപ്രതിജ്ഞ ചെയ്തു മധ്യകേരളത്തിൽ മഴക്കെടുതികൾ തുടരുന്നു സംസ്ഥാനത്തിന്റെ ആവശ്യങ്ങൾ കേന്ദ്രത്തെ ധരിപ്പി ക്കാൻ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ സർവ്വകക്ഷി സംഘം ഉച്ചകഴിഞ്ഞ് ഡൽഹിക്ക് പോകും എസ് ഡി പി ഐയുമായി സി പി ഐ എം പലയിടത്തും

കൊലപാത കത്തിൽ ഒന്നാം പ്രതിയാണ് ഇയാളെന്ന് എറണാകുളം റേഞ്ച് ഐ

ഇയാളുടെ അറസ്റ്റ് വൈകീട്ട് രേഖപ്പെടുത്തും

ആസൂത്രണം ചെയ്തത് മുഹമ്മദാണ് എന്നാണ് പൊലീസിന്റെ വിലയിരുത്തൽ ഇയാൾക്ക് സംഭവ ത്തിൽ നേരിട്ട് പങ്കുണ്ട് മഹാരാജാസിലെ മൂന്നാം വർഷ ബിരുദ വിദ്യാർത്ഥിയും കോളജിലെ ക്യാമ്പസ് ഫ്രണ്ട് യൂണിറ്റ് പ്രസി ഡണ്ടുമാണ് മുഹമ്മദ് കാസർകോട് കർണാടക അതിർത്തി യിൽ നിന്നാണ് ഇയാളെ പിടികൂടിയത് എന്നാണ് റിപ്പോർട്ട് കൊല പാ ത ക സം ഘ ്തിലെ മറ്റ് മൂന്ന് പേരും പിടിയിലായിട്ടുണ്ടെന്ന് സൂചനയുണ്ട് ഇവരുടെ അറസ്റ്റ് വൈകാതെ രേഖപ്പെടുത്തും അഭിമന്യുവിനെ കുത്തിയ ആളെ തിരിച്ചറിഞ്ഞതായും പൊലീസ് പറഞ്ഞു കൊലപാതകം ആസൂത്രിതമായിരുന്നു വെന്ന് അറസ്റ്റിലായ മുഹമ്മദ് മൊഴി നൽകിയതായി സൂചനയുണ്ട് കോളജിലെ ചുവരെഴുത്തുമായി ബന്ധപ്പെട്ട് എസ് എഫ് ഐയും ക്യാമ്പസ് ഫ്രണ്ടും തമ്മിൽ തർക്കമുണ്ടായിരുന്നു എസ് എഫ് ഐ യെ ചെറുക്കാൻ നിർദ്ദേശം ലഭിച്ചതനുസരിച്ച് സഹായത്തിന് ആളുകളെ പുറത്ത് ഒരുക്കി നിർത്തിയിരുന്നു

അതിന്ശേഷമാണ് അഭിമന്യുവിന്റെ കൊലപാതകമുണ്ടായത് സംസ്ഥാന പൊലീസ് മേധാവി ലോക്നാഥ് ബെഹ്റ മുഖ്യ മന്ത്രി പിണറായി വിജയ നു മായി തിരുവനന്തപുരത്ത് കൂടിക്കാഴ്ച നടത്തി

ഏതാനും പ്രവർത്തകർക്ക് പരിക്കേറ്റിട്ടുണ്ട്

കോൺഗ്രസ് ഉൾപ്പെടെ പ്രതി പക്ഷ പാർട്ടികൾ പ്രമേയത്തെ പിന്തുണക്കുന്നതായി അറിയിച്ചു പ്രമേയ ത്തിൽ ചർച്ചയുടെ തിയ്യതി ്രണ്ടു ദിവസത്തിനകം അറി യിക്കുമെന്ന് സ്പീക്കർ പറഞ്ഞു പ്രതിപക്ഷം ഉന്നയിക്കുന്ന ഏതു വിഷയത്തിലും ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അറിയിച്ചു ദേശീയതാത്പര്യം മുൻനിർത്തി ഒട്ടേറെ വിഷ യങ്ങൾ പാർലമെന്റ് പരി ഗ ണി ക്കേ ണ്ട തു ണ്ട്

സുഗമമായ പാർലമെന്റ് പ്രവർത്തനം സംസ്ഥാന നിയമസഭകൾക്കും പ്രചോദനമായി മാറുമെന്നും നരേന്ദ്രമോദി അഭിപ്രായപ്പെട്ടു ലലലലലലലലലലലലല കേരളത്തിൽ നിന്ന് രാജ്യസഭയിലേക്ക് തെരഞ്ഞെടു ക്കപ്പെട്ട മൂന്ന് പേരും രാവിലെ സത്യപ്രതിജ്ഞ ചെയ്തു സി പി ഐ എമ്മിലെ എളമരം കരീം സി പി ഐ യിലെ ബിനോയ് വിശ്വം കേരള കോൺഗ്രസ് എമ്മിലെ ജോസ് കെ മാണി എന്നിവരാണ് സത്യപ്രതിജ്ഞ ചെയ്തത്

കോട്ടയം പത്തനംതിട്ട ആലപ്പുഴ ജില്ലകളിൽ ഇപ്പോഴും തുടരുന്ന മഴ വെളളപ്പൊക്ക ഭീഷണി വർദ്ധിപ്പിച്ചിരിക്കു കയാണ്

അണക്കെട്ടുകൾ നിറഞ്ഞതിനാൽ ഏതുനിമി ഷവും ഷട്ടറുകൾ തുറക്കാൻ സാധൃതയുണ്ടെന്ന് അധി കൃതർ അറിയിച്ചു

സി റോഡിൽ ഗതാഗതം നിർത്തി വെച്ചിരിക്കുകയാണ് ഉത്തരകേരളത്തിൽ ഇന്ന് മഴയുടെ ശക്തി നേരിയ തോതിൽ കുറഞ്ഞിട്ടുണ്ട് കനത്ത മഴയെത്തുടർന്ന് കോട്ടയം വഴി പോകുന്ന പത്ത് പാസഞ്ചർ ട്രെയിനുകൾ റദ്ദാക്കി പാലക്കാട് തി രുനെൽവേലി പാലക്കാട് പാലരുവി എക്സ്പ്രസും റദ്ദാക്കിയിട്ടുണ്ട്

ജലനിരപ്പ് ഉയർന്നു കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഡാം ഷട്ടറുകൾ ഏത് സമയത്തും തുറക്കാൻ സാധ്യതയുളളതിനാൽ കല്ലടയാറിന്റെ തീരത്ത് താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ കലക്ടർ അറിയിച്ചു

ഷൊർണൂർ സ്വദേശി ബിജോയ് ആണ് മരിച്ചത് ലലലലലലലലലലലല കടലുണ്ടി പുഴയിൽ ഒഴുക്കിൽപ്പെട്ട് കാണാതായ വിദ്യാർത്ഥി മുഹമ്മദ് റബീഹിന്റെ മൃതദേഹം കണ്ടെത്തി

ആളപായമില്ല

നില

തകർന്ന്

ആറ് നില കെട്ടിടം സമീപത്തെ മറ്റൊരു കെട്ടിടത്തിന്റെ മുകളിലേക്ക് തകർന്ന് വീഴുകയായിരുന്നു പൊലീസും ദുരന്ത നിവാരണ സേനയും രക്ഷാപ്രവർത്ത നങ്ങൾ തുടരുകയാണ് ലലലലലലലലലലലല സംസ്ഥാനത്തിന്റെ ആവശ്യങ്ങൾ കേന്ദ്ര ഗവൺമെന്റിനെ ധരിപ്പിക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ സർവകക്ഷിസംഘം ഇന്ന് ഉച്ചകഴിഞ്ഞ് ഡൽഹിക്ക് പോകും

കഞ്ചിക്കോട് കോച്ച് ഫാക്ടറി അങ്കമാലി ശബരി പാത കായംകുളം ആലപ്പുഴ എറണാകുളം പാത ഇരട്ടിപ്പിക്കൽ തുടങ്ങിയവയും കൂടിക്കാഴ്ചയിൽ ഉന്നയിക്കും

പാലു കൊടുത്ത കൈക്ക് കടിച്ചപ്പോ ഴാണ് എസ് ഡി പി ഐ യെ തിരിച്ചറിയാൻ സി പി ഐ എമ്മിന് കഴിഞ്ഞതെന്ന് അദ്ദേഹം ന്യൂഡൽഹിയിൽ ഒരു മലയാളം വാർത്താചാനലിനോട് പറഞ്ഞു മുമ്പ് പല വന്ന പ്പോഴും പേരു ക ളിൽ പിന്തുണയ്ക്കുന്ന നിലപാടാണ് സി പി ഐ എം പിന്തു ടർന്നതെന്ന് കുഞ്ഞാലിക്കുട്ടി കുറ്റപ്പെടുത്തി സംഘപ രിവാറിനെ എതിർക്കുന്നതുപോലെ എസ് ഡി പി ഐയെയും ഒരുമിച്ച് എതിർക്കണമെന്നും അവരെ വേരോടെ പിഴുതെറിയണമെന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു ശരിതരൂരിന്റെ ഹിന്ദു പാകിസ്താൻ പരാമർശ ത്തിൽ തെറ്റായി ഒന്നുമില്ലെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു സംസ്ഥാന മന്ത്രിസഭയിൽ പുനഃസംഘടന ഉണ്ടാവി ല്ലെന്ന് സി പി ഐ എം സംസ്ഥാന സെക്ര ട്ടറി കോടിയേരി ബാലകൃഷ്ണൻ അറിയിച്ചു നാളെ തുടങ്ങുന്ന മുന്നണി നേതൃയോഗങ്ങളിൽ ഇക്കാരൃങ്ങൾ ചർച്ചയാകില്ലെന്ന് കോടിയേരി തിരുവനന്തപുരത്ത് വൃക്തമാക്കി ലലലലലലലലലലലലല കേരളത്തിലെ മുന്നണി രാഷ്ട്രീയം അപക്ഷമാണെന്ന് പി സി ജോർജ്ജ് എം എൽ എ പറഞ്ഞു കേരള ജന പക്ഷം മലപ്പുറം ജില്ലാനേതൃസംഗമം ഉദ്ഘാടനം ചെയ്യു കയായിരുന്നു അദ്ദേഹം

ലലലലലലലലലലലലല അട്ടപ്പാടി മുക്കാലി മോഡൽ റസിഡൻഷ്യൽ സ്കൂളിൽ പുതുതായി അനുവദിച്ച ഹയർസെക്കൻറി വിഭാഗത്തിൽ ഇന്ന് ക്ലാസുകൾ ആരംഭിക്കും

ബാലൻ നിർവഹിക്കും ലലലലലലലലലലലലല റാഗിംങ്ങിനെച്ചൊല്ലി വിദ്യാർത്ഥിസംഘർഷമുണ്ടായ കാസർകോട് നീലേശ്വരം കോട്ടപ്പുറം സി എച്ച് മുഹ മ്മദ്കോയ സ്മാരക ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർസെക്കണ്ടറി സ്കൂൾ അനിശ്ചിതകാലത്തേക്ക് അടച്ചു ഇന്നലെ ഉച്ചയ്ക്ക് റാഗിംങ്ങിന്റെ പേരിൽ പ്ലസ് വൺ പ്ലസ് ടു വിദ്യാർത്ഥി സംഘർഷം ഉണ്ടായതിനെ തുടർന്ന് ഏഴ് പേരെ സസ്പെൻഡ് ചെയ്തു ലലലലലലലലലലലലല സൂക്ഷ്മ ചെറുകിട ഇടത്തരം പരമ്പരാഗത മേഖലകളിലെ വിദഗ്ദ്ധ തൊഴിലാളികളുടെ കുറവ് നിക ത്തു ന്നതിനായി ലേബർ ബാങ്ക് രൂപീക് രിക്കാൻ ഗവൺമെന്റ് തീരു മാനിച്ച തായി മന്ത്രി ടി

അട്ടപ്പാടി മേഖലയിൽ ആദിവാസി വിഭാഗങ്ങളിൽ നിന്ന് ലഭിച്ച അപേക്ഷകളിലാണ് കൈവശ രേഖ നൽകാൻ തീരുമാനമായത് ഷോളയൂർഗൂളിക്കടവ്പട്ടിമാളം എന്നിവടങ്ങളിലെ ഭൂമിക്കാണ് ആദ്യഘട്ടത്തിൽ കൈവശ രേഖ നൽകുക പാലക്കാട് ജില്ലയിൽ അടിസ്ഥാനസൌകരൃങ്ങൾ ഒരുക്കി ആദിവാസി കോളനികളെ മാതൃകാ കോളനികളാക്കി ഉയർത്തുന്ന പദ്ധതി നടപ്പാക്കും

പാലക്കാടിന് പുറമെ ആദിവാസി ജനവിഭാഗങ്ങൾ കൂടുതലുള്ള കാസർഗോഡ് കണ്ണൂർ വയനാട് തൃശൂർ ഇടുക്കി തിരുവനന്തപുരം ജില്ലകളെയും പദ്ധതിക്കായി തെരഞ്ഞെടുത്തിട്ടുണ്ട്